തിരുവനന്തപുരം വിമാന്ത്ത്വളങ്ങളും കൊച്ചി തുറമുഖവും പൂർണ്ണ് സ്റജ്ജം

സംസ്ഥാനത്ത് തീര്വബാധിത മേഖലകളിൽ ഒഴികെ ജനജീവിതം സജീവമാകുന്നു

സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ട്രെയിനുകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മലയാളികളുടെ മടക്കയാത്ര തുടരുന്നു

വിമാനത്തിൽ ആദ്യ ആഴ്ച എത്തുന്നവരിൽ അധികവും കേരളത്തി ലാണ് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം വിമാനത്താവളങ്ങളി ലാണ് പ്രവാസികൾ എത്തിച്ചേരുന്നത്

സമുദ്ര സേതു ദൌത്യ പ്രകാരം കപ്പൽ മാർഗ്ഗവും പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നുണ്ട് നാവികസേന ദൌത്യം ആരംഭിച്ചു കഴിഞ്ഞു മാലദ്വീപിലേക്കും ദുബായിലേക്കും നാവികസേന യുടെ കപ്പലുകൾ ഇതിനോടകം പുറപ്പെട്ടിട്ടുണ്ട്

തിരിച്ചെത്തുന്നവർക്കായി സംസ്ഥിപ്പുനർത്ത് വിപുലമായ ക്രമീകരണ ങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്

സർക്കാർ മാർഗ്ഗനിർദ്ദേശങ്ങളനുസരിച്ച് ഇവർ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും ജില്ലയിലെ വിവിധ ഹോസ്റ്റലുകൾ ഹോട്ടലുകൾ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയവ താമസസൌകര്യത്തിനായി ഏറ്റെടുത്തിട്ടുണ്ട്

ഇപ്പോഴും നൂറ് കണക്കിന് പേർ ക്യൂവിലുണ്ടെന്ന് ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ റിപ്പോർട്ട് ചെയ്യുന്നു

തമിഴ്നാട്ടിൽ നിന്നെത്തിയ മൂന്ന് ഹോമിയോ വിദ്യാർത്ഥികളെ രോഗലക്ഷണങ്ങളെ തുടർന്ന്കോവിഡ് കെയർ സെന്ററിലേക്ക് മാറ്റിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ആകാശവാണി പ്രതിനിധി ജഗന്നിവാസൻ

കാറന്റൈനിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ

പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ഭൂഗർഭ കേബിളിടൽ കുതിരാൻ തുരങ്കത്തിലെ നിർമ്മാണപ്രവർത്തികൾ ഗ്രാമപഞ്ചാത്തുകളിലും മറ്റും നടക്കുന്ന നിർമ്മാണങ്ങൾ തുടങ്ങിയാണ് ലോക്ക് ഡൌൺ ഇളവിന്റെ പശ്ചാത്തലത്തിൽ പുനരാരംഭിച്ചത്

സമ്പർക്കത്തിലൂട്ടെയാണ് ഇവർക്ക് രോഗം പകർന്നത്

ഓഹരി രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് മുന്നേറ്റം